വോട്ടെടുപ്പ് ദിവസം ഡ്യൂട്ടിയുള്ള് അവശ്യ സർവീസ് ജീവനക്കാർക്ക് പോസ്റ്റൽ ബാലിറ്റ് സംവിധാനം ഏർപ്പെടുത്തിയതായി മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ

കേരളത്തിൽ നിന്നും വരുന്നവർക്ക് ആർ ടി പി സിആർ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമല്ലെന്ന് തമിഴ്നാട് സർക്കാർ

ഐ എസ് എൽ രണ്ടാം സെമിയിൽ എ ടി കെ മോഹൻ ബഗാൻ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

പോളിറ്റ് ബ്യൂറോയുടെ അംഗീകാരത്തിനു ശേഷം നാളെ സ്ഥാനാർഥി പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന

നാല് സീറ്റുകളിൽ രണ്ടു ദിവസത്തിനകം പ്രഖ്യാപനം നടത്തുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ അറിയിച്ചു

ഡി

സ്ഥാനാർഥികളെ നിശ്ചയിക്കാനുള്ള സ് ക്രീനിങ് കമ്മിറ്റിക്കായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഡൽഹിയിലെത്തി

ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മറ്റന്നാൾ തൃശൂരിൽ ചേരുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തിന് ശേഷം ഉണ്ടാവുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ കെ

കേന്ദ്ര നേതൃത്വമായിരിക്കും പട്ടിക പുറത്തു വിടുക

റവന്യൂ മന്ത്രി ഇ

എൽ

സിപിഐയുടെ സീറ്റുകൾ കുറഞ്ഞിട്ടില്ലെന്നും ഘടകകക്ഷികൾ വന്നപ്പോൾ രണ്ട് സീറ്റുകൾ വിട്ടു നൽകിയതായും സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ വൃക്തമാക്കി

സിറ്റിംഗ് എം

എ മാരായ എൻ ജയരാജ് കാഞ്ഞിരപ്പള്ളിയിലും റോഷി അഗസ്റ്റിൻ ഇടുക്കിയിലും സ്ഥാനാർത്ഥികളാവും പൂഞ്ഞാറിൽ സെബാസ്റ്റ്യൻ കുളത്തിങ്കലും ചങ്ങനാശേരിയിൽ ജോബ് മൈക്കിളും ജനവിധി തേടും കേരളാ കോൺഗ്രസ് എമ്മിന് എൽ ഡി

ഔദ്യോഗിക പ്രഖ്യാപനം നാളെയുണ്ടാകുമെന്ന് പാർട്ടി ചെയർമാൻ അറിയിച്ചു

ഡി സംസ്ഥാന അധ്യക്ഷൻ എം പി ശ്രേയാംസ്കുമാർ എംപി മത്സരിക്കാൻ സാധ്യത ജില്ല മണ്ഡലം കമ്മിറ്റികൾ അദ്ദേഹത്തെ ഐക്യകണ്ഠേന നിർദ്ദേശിച്ചതോടെയാണ് സാധ്യത ഏറിയത് നാളെ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിന് ശേഷം സംസ്ഥാന കമ്മിറ്റി ചേർന്ന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും

ആരോഗ്യ വകുപ്പ് പോലീസ് ഫയർ ഫോഴ്സ് ജെയിൽ എക്സൈസ് മിൽമ ഇലക്ട്രിസിറ്റി വാട്ടർ അതോറിറ്റി കെഎസ് ആർ ടി സി ട്രഷറി ഫോറസ്റ്റ് ആകാശവാണി ദൂരദർശൻ ബി എസ് എൻ എൽ റെയിൽവെ പോസ്റ്റ് ആന്റ് ടെലിഗ്രാഫ് ഏവിയേഷൻ എന്നിവയും ആംബുലൻസ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ചിട്ടുള്ള പത്ര പ്രവർത്തകർ ഷിപ്പിംഗ് എന്നിവയുമാണ് അവശ്യ സർവീസായി പ്രഖ്യാപിച്ചിട്ടുള്ളത് വോട്ടെടുപ്പ് ദിവസം ഡ്യൂട്ടിയുള്ള കേരളത്തിലെ വോട്ടർ പട്ടികയിൽ പേരുള്ള ജീവനക്കാർക്കാണ് പോസ്റ്റൽ വോട്ടിന് അർഹതയുള്ളത്

പെരുമാറ്റച്ചട്ട ഇളവുകൾ നിയമസഭാ മാതൃകാപെരുമാറ്റച്ചട്ട ഇളവുകൾക്കായി സർക്കാർ വകുപ്പുകൾ വകുപ്പ് തലവൻമാർ പൊതുമേഖല സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ നിന്നുള്ള ശുപാർശ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സ്ക്രീനിംഗ് കമ്മറ്റിക്ക് നൽകണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ടീക്കാറാം മീണ അറിയിച്ചു സ്ക്രീനിംഗ് കമ്മറ്റി പരിശോധിച്ച് ലഭ്യമാക്കുന്ന ശുപാർശകളാണ് മുഖ്യതിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് നൽകേണ്ടത് ഇതിൽ വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയുണ്ടാകുമെന്നും അദ്ദേഹം അറിയിച്ചു

അനധികൃതമായി മദ്യം മയക്കുമരുന്ന് പണം എന്നിവ അതിർത്തി പ്രദേശങ്ങളിലൂടെ ജില്ലകളിലെത്തുന്നത് തടയാൻ തമിഴ്നാട് എക്സൈസ് പോലീസ് വകുപ്പുകളുമായി സഹകരിച്ച് ജോയിന്റ് പട്രോളിംഗ് നടത്തും

ഡി എ ഒഴിച്ചുള്ള മുന്നണികളുടെ സീറ്റ് വിഭജനം ജില്ലയിൽ പൂർത്തിയായിട്ടുണ്ട്

കോവീഷീൽഡ് വാക്സിനുകളാണ് എത്തുന്നത്

ജ്യോതിലാൽ തമിഴ് നാട് സർക്കാരിലെ ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോഴാണ് മറുപടി ലഭിച്ചത്

പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് രണ്ട് തവണ സഭ നിർത്തി വച്ചെങ്കിലും പ്രതിഷേധം തുടർന്ന സാഹചരൃത്തിൽ സഭ ഇന്നത്തേക്ക് പിരിയുക ആയിരുന്നു

പാർലമെന്റ് വോയ്സ് പെട്രോൾ ഡീസൽ പാചകവാതകം എന്നിവയുടെ വിലവർദ്ധന ചൂണ്ടിക്കാട്ടി പാർലമെന്റിന്റെ ഇരുസഭകളിലും സമ്മേളനം ആരംഭിച്ചതു മുതൽ തന്നെ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചു കോൺഗ്രസ് ഇടതു പാർട്ടികൾ ഡിഎംകെ എൻസിപി ശിവസേന തുടങ്ങിയ കക്ഷികളിൽപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യമുയർത്തി ചോദ്യോത്തര വേള തടസ്സപ്പെടുത്താതെ സീറ്റുകളിലേക്ക് മടങ്ങാൻ ലോക്സഭയിൽ സ്പീക്കർ ആവശ്യപ്പെട്ടെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല രാജ്യസഭയിൽ വിഷയം പതിവ് ചർച്ചയ്ക്കിടെ ഉന്നയിക്കാമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ അറിയിച്ചെങ്കിലും സഭ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിന്നു

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഈ തുക കോവിഡ് മഹാമാരി സമ്പദ് വൃവസ്ഥയ്ക്ക് ഏല്പിച്ച ആഘാതം ലഘൂകരിക്കാൻ ഉപകരിച്ചതായും മന്ത്രി വൃക്തമാക്കി ഭാവിയിൽ ക്ഷാമബത്ത അനുവദിക്കുമ്പോൾ മരവിപ്പിച്ച ഗഡുക്കൾ കൂടി കണക്കിലെടുത്താവും നിരക്ക് നിശ്ചയിക്കുകയെന്നും അദ്ദേഹം അറിയിച്ചു

കോവിഡ്പശ്ചാത്തലത്തിൽ പൂരം നടത്തുന്നതിന് വേണ്ട നടപടികൾ തീരുമാനിക്കുന്നതിന് ഇന്ന് കളക്ടറുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിലാണ് ഈ തീരുമാനം ഉണ്ടായത്

മൽസ്യ ബന്ധന മേഖലയിൽ നേരിട്ടുള്ള വിദേശ നിക്ഷേപം അനുവദിക്കന്നതുൾപ്പെടെ മൽസൃത്തൊഴിലാളികളെ ഗുരുതരമായ ബാധിക്കുന്ന നിർദേശങ്ങൾ ഫിഷറീസ് നയത്തിൽ ഉണ്ടെന്ന് പ്രതിപക്ഷനേതാവ് കത്തിൽ ചൂണ്ടിക്കാട്ടി കേരളത്തിലെ പത്ത് ലക്ഷത്തോളം വരുന്ന മൽസ്യത്തൊഴിലാളികളെ അതീവ ദോഷകരമായി ബാധിക്കുന്നതാണ് നയമെന്നും കത്തിൽ പറയുന്നു

സുരേന്ദ്രൻ കേന്ദ്ര മന്ത്രി അമിത് ഷായ്ക്ക് നേരെമുഖ്യമന്ത്രി പിണറായി വിജയൻ ഉന്നയിച്ചു വിമർശനങ്ങൾക്കെതിരെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ

ജാനു എൻഡിഎയിൽ മടങ്ങി വന്നത് അഭിമാനാർഹമാണ് സുരേഷ് ഗോപി ഇ ശ്രീധരൻ കുമ്മനം രാജശേഖരൻ വി മുരളീധരൻ അടക്കമുള്ള എല്ലാവരും മത്സരിക്കണമെന്നാണ് പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നതെന്നും ശ്രീ കെ സുരേന്ദ്രൻ പറഞ്ഞു സ്വർണക്കടത്ത് സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്ഥപ്ന സുരേഷിന്റെ രഹസ്യമൊഴി പുറത്ത് വിട്ടെന്ന പരാതിയിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കമ്മീഷണർ സുമിത് കുമാറിന് അഡക്കറ്റ് ജനറലിന്റെ നോട്ടീസ് ക്രിമിനൽ കോടതിയലക്ഷ്യത്തിന് നടപടിയെടുക്കാതിരിക്കാൻ കാരണമുണ്ടെങ്കിൽ അറിയിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് കസ്റ്റംസ് കമ്മീഷണർക്ക് എജി നോട്ടീസയച്ചത്

സുമിത്കുമാറിനെതിരെ നടപടിയെടുക്കണമെന്നാവശൃപ്പെട്ട് കൊച്ചിയിലെ സി

എം നേതാവും ബാംബു കോർപറേഷൻ ചെയർമാനുമായ കെ

ജേക്കബ് സമർപ്പിച്ച പരാതിയിലാണ് എ ജിയുടെ നടപടി

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ

രണ്ടാം സെമിഫൈനലിൽ എ

കെ മോഹൻ ബഗാൻ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടും

സ്വർണ്ണവില കുറഞ്ഞു